പുൽവാമ ഭീകരാക്ര്മണ്ട്ത്ത തുടർന്നുള്ള സ്ഥിതി ശ്രീനഗറിൽ കേന്ദ്രകൃആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് വിലയിരുത്തി

ഭീകരാക്രമണത്തിനെതിരെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ജമ്മുനഗരത്തിൽ കർഫ്യൂ ഏർപ്പെടുത്തി

ദേശീയ ബാഡ്മിന്റണിൽ പി

സിന്ധുവും വൈഷ്ണവി ഭാലേയും അഷ്മിത ചാലിഹയും സെമിയിൽ

പുൽവാമ ഭീക്രാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ജീവത്യാഗം പാഴാവില്ല ഉത്തർപ്രദേശിലെ ഝാൻസിയിൽ പൊതു സമ്മേളനത്തെ അഭിസംബോധനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

ഭീകരരെയും അവരെ നിയന്ത്രിക്കുന്നവരെയും നേരിടാൻ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യമാണ് നൽകിയിട്ടുള്ളതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഗൂഢാലോചനകളിലൂടെയും ഭീകര പ്രവർത്തനങ്ങളിലൂടെയും ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താമെന്നാണ് നമ്മുടെ അയൽക്കാർ വ്യാമോഹിക്കുന്നത് വലിയ തെറ്റാണ് ചെയ്യുന്നതെന്ന് അവർക്ക് ബോധ്യമാവും ഭീകരാക്രമണങ്ങൾക്ക് കനത്ത വിലനൽകേണ്ടിവരും ഭീകരാക്രമണത്തെ അപലപിക്കുകയും ഇന്തൃയ്ക്ക് പിന്തുണ അറിയിക്കുകയും ചെയ്ത എല്ലാ രാഷ്ട്രങ്ങൾക്കും പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച സുരക്ഷാ സൈനികർക്കും പ്രധാനമന്ത്രി ആദരാഞ്ജലി അർപ്പിച്ചു

ഝാൻസിയിലെ പ്രതിരോധ ഇടനാഴിക്ക് ശ്രീ നരേന്ദ്രമോദി തറക്കല്ലിട്ടു

പുൽവാമയിലെ ദുരന്തം തികച്ചും വേദനാജനകവും അലോസരമുണ്ടാക്കുന്നതുമാണെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു സംസ്ഥാനത്തെ ഉന്നത സുരക്ഷാ പോലീസ് ഉദ്യോസ്ഥരുമായി അദ്ദേഹം നിലവിലെ സ്ഥിതി വിലയിരുത്തി രാജൃത്തിന്റെ സമാധാനം തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ശക്തിയേയും വെറുതെ വിടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ആക്രമണങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ എൻ

എ സംഘത്തേയും ഫോറിൻസിക് വിദഗ്ദ്ധരേയും സംഭവസ്ഥലത്തേക്ക് നിയോഗിച്ചിട്ടുണ്ട്

പുൽവാമ ചാവേറാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ വിഷയങ്ങൾ സംബന്ധിച്ച് ചർച്ച ചെയ്തു ഗവർണർ സത്യപാൽ മാലിക് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി രാജീവ് ഗൌബ ഗവർണറുടെ ഉപദേഷ്ടാവ് കെ

ഇന്ന് ഉച്ചയ്ക്കുശേഷം നടന്ന അന്തുരിച്ച് ജവാന്മാർക്കുള്ള റീത്ത് സമർപ്പിക്കൽ ചടങ്ങിലും അദ്ദേഹം പങ്കെടുത്തു ശ്രീനഗറിൽ ആക്രമണത്തിൽ പരിക്കേറ്റ് പ്ലിക്ടിത്സയിൽ കഴിയുന്ന സി

എഫ് ജവാന്മാരെ അദ്ദേഹം സന്ദർശിച്ചു

പാക് ഭീകര സംഘടനയായ ജയ്ഷെ മുഹമ്മദ് നടത്തുന്ന ഭീകരാക്രമണത്തെ തിരിച്ചറിഞ്ഞ് ശക്തമായ നടപടികളെടുക്കണമെന്ന് വിദേശകാര്യ സെക്രട്ടറി ആവശ്യപ്പെട്ടു പാക് മണ്ണിൽ നിന്നുള്ള വൃക്തികളുടെയും ഗ്രൂപ്പുകളുടെയും ഭീകരാക്രമണം തടയാൻ കർശനമായി നടപടിയെടുക്കണം പുൽവാമ ഭീകരാക്രമണത്തെക്കുറിച്ച് പാക് വിദേശകാര്യ മന്ത്രാലയം പുറപ്പെടുവിച്ച പ്രസ്താവന വിദേശകാര്യ സെക്രട്ടറി നിരാകരിച്ചു

രാവിലെ ന്യൂഡൽഹിയിൽ ചേർന്ന കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാ സമിതിയോഗത്തിലാണ് തീരുമാനം അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നും പാക്കിസ്ഥാനെ ഒറ്റപ്പെടുത്താൻ ഇന്ത്യ എല്ലാവിധ നടപടികളും സ്വീകരിക്കുമെന്ന് യോഗശേഷ്ടം കേന്ദ്രമന്ത്രി അരുൺജെയ്റ്റിലി പറഞ്ഞു ഭീകരവാദ്ദികളും അവർക്ക് ഒത്താശ ചെയ്യുന്നവരും ഇതിന് കനത്ത പ്പിൽ ൻൽകേണ്ടി വരുമെന്നും കേന്ദ്ര മന്ത്രി പറഞ്ഞു പ്രധാനമന്ത്രി അധ്യ്ക്ഷത വഹിച്ച യോഗത്തിൽ ആഭ്യന്തരമന്ത്രി രാജ്നാഥ്സിംഗ് പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ വിദേശക്ട്ര്യ്മന്ത്രി സുഷമസ്വരാജ് ധനമന്ത്രി അരുൺജെയ്ലിറ്റി എന്നിവരും പങ്കെടുത്തു ആക്രമണത്തിൽ ജീവത്യാഗം വരിച്ച സൈനികർക്ക് യോഗം ആദരാഞ്ജലി അർപ്പിച്ചു

കൂടിലോചനകൾക്കായാണ് സ്ഥാനപതിയെ വിളിപ്പിച്ചതെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു

ക്രമസമാധാനനില പാലിക്കാൻ ജില്ലാ ഭരണകൂടം സൈനൃത്തിന്റെ സഹായം തേടിയിട്ടുണ്ട് ഭീകരാക്രമണത്തിൽ ശക്താമായ പ്രതിഷേധമാണ് ജമ്മു പഴയ നഗരത്തിൽ പ്രകടമാവുന്നത് മുൻ കരുതലെന്ന നിലയിലാണ് കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുള്ളതെന്ന് ജമ്മു ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ രമേഷ്കുമാർ വാർത്താ ലേഖകരോട് പറഞ്ഞു

എസ് റഷ്യ ഫ്രാൻസ് ജർമനി ഓസ്ട്രേലിയ തുർക്കി കാനഡ ചെക്ക് റിപ്പബ്ലിക്ക് തുടങ്ങിയ നിരവധി രാജ്യങ്ങൾ ഇന്ത്യയ്ക്ക് പിന്തുണ അറിയിച്ചു ഭീകര പ്രവർത്തനം നേരിടാൻ ഇന്ത്യക്ക് എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് അമേരിക്ക വൃക്തമാക്കി ഉപാധിരഹിതമായി ഇന്ത്യയ്ക്ക് പിന്തുണ ഉറപ്പാക്കുമെന്ന് റഷ്യൻ എംബസി പറഞ്ഞു ഫ്രാൻസ് യു എ ഇ ബംഗ്ലാദേശ് ഭൂട്ടാൻ ശ്രീലങ്ക മാലദ്വീപ് എന്നീ രാജ്യങ്ങളും ദുഃഖവും പ്രതിഷേധവും അറിയിച്ചിട്ടുണ്ട്

കുറ്റവാളികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണമെന്ന് സെക്രട്ടറി ജനറൽ ആവശ്യപ്പെട്ടു

പുൽവാമയിലെ ഭീകരാക്രമണം ഭീകരതയെ നേരിടുന്നതിനുള്ള സഹകരണത്തിനും സ്പ്റായത്തിനും ശക്തി പകരുമെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സ്പ്രക്ഷട്ടറ്റി ്സാറാ സാന്റേഴ്സ് പറഞ്ഞു

എല്ലാ രീതിയിലുമുള്ള ഭീകര പ്രവർത്തനങ്ങളെയും ചൈന അപലപിക്കുന്നതായി ചൈനീസ് വിദേശകാരൃ വക്താവ് അറിയിച്ചു

ഇന്ത്യയുടെ ഐക്യത്തെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയില്ലെന്ന് കോൺഗ്രസ്സ് അദ്ധ്യക്ഷൻ രാഹുൽ ഗാന്ധി ന്യൂഡൽഹിയിൽ പറഞ്ഞു ഭീകരാക്രമണം ചെറുക്കാൻ രാജ്യം ഒറ്റക്കെട്ടായി നിലകൊള്ളുമെന്ന് മുൻ പ്രധാനമന്ത്രി ഡോ മൻമോഹൻ സിംഗ് വ്യക്തമാക്കി

ന്യൂഡൽഹിയിൽ നിന്നും കാൺപൂർ വഴി വാരാണസിയിലേക്കാണ് ട്രെയിൻ സർവ്വീസ് നടത്തുന്നത് തിങ്കൾ വ്യാഴം ഒഴികെയുള്ള ദിവസങ്ങളിൽ സർവ്വീസ് നടത്തുന്ന ഈ ട്രെയിൻ എട്ടു മണിക്കൂറിൽ ന്യൂഡൽഹിയിൽ നിന്ന് വാരാണസിയിൽ എത്തും

ഔപചാരികമായ ഉദ്ഘാടനം നാളെ ഗവർണർ ജസ്റ്റിസ് പി

ചൊവ്വാഴ്ചത്തെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും

പത്തനംതിട്ടയിൽ മിസ്സോറാം ഗവർണർ ശ്രീ കുമ്മനം രാജശേഖരൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യും

തീർത്ഥാടന ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ സ്വദേശ് ദർശൻ പദ്ധതി പ്രകാരമാണ് ഇത് നടപ്പാക്കുന്നത്

ഡി

പിക്ക് ഒന്നും കക്ഷിരഹിതർക്ക് രണ്ടും സീറ്റുകൾ ലഭിച്ചതായി സംസ്ഥാന്റു തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു

നാഗ്പൂരിൽ നിന്നുള്ള വൈഷ്ണവി ഭാലെയും ആസ്സാമിന്റെ അഷ്മിത ചാലിഹയും സെമിഫൈനലിൽ ഇടം നേടിയിട്ടുണ്ട് കാർട്ടർ ഫൈനലിൽ റിയ മുഖർജിയെയാണ് സിന്ധു പരാജയപ്പെടുത്തിയത് വൈഷ്ണവി ശ്രിയാൻഷി പർദേശിയെയും അഷ്മിത ആകർഷി കശ്യപിനെയും പരാജയപ്പെടുത്തി

പുരഷ സിംഗിൾസിൽ പി കശ്യപും ബി സായ് പ്രണീതും ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു

ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ശുപാർശ പ്രകാരമാണ് ധനസഹായം അനുവദിച്ചതെന്ന് മന്ത്രി കെ

ശൈലജ അറിയിച്ചു

സുനിൽ അറോറ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ കമ്മീഷനിൽ സുശീൽ ചന്ദ്രയ്ക്കു പുറമെ അശോക് ലവാസയും കമ്മീഷണറാണ്

ജസ്റ്റിസ് എ

സിക്രി അബ്ദുൾ നസീർ സുഭാഷ് റെഡ്നി എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് ഉത്തരവ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നതിലെ അതേ നടപടിക്രമങ്ങൾ ഇക്കാര്യത്തിൽ ലും പിന്തുടരണമെന്ന് കോടതി വ്യക്തമാക്കി വിവരാവകാശ കമ്മീഷണർമാരായി ഉദ്യോഗസ്ഥർക്ക് പുറമെ മികച്ച യോഗ്യരായ പൌരന്മാരെ കൂടി പരിഗണിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു

ഇതു സംബന്ധിച്ച് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു